സദാശിവം സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം

മെന്ന് മുഖ്യമന്ത്രി പിണ്ണറായി ് വിജയൻ ഓണം പ്ലാസ്റ്റിക് മുക്തമായി ആഘോഷിക്കണമെന്നും മുഖ്യമന്ത്രി

രാജ്യത്ത് പ്രാബലൃത്തിൽ

ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നാളെ അത്തം

കേരള ഗവർണർ അഞ്ച് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകാരം നല്കി മുൻ കേന്ദ്രമന്ത്രി ആരിഫ് മുഹ മ്മദ് ഖാൻ പുതിയ കേരള ഗവർണറാകും

ഉത്തർപ്രദേശ് സ്വദേശിയായ ആരിഫ് മുഹമ്മദ് ഖാൻ മുസ്തീം വനിതകളുടെ അവകാശ സംരക്ഷണ ത്തിനായി സ്വീകരിച്ച നിലപാടുകൾ ശ്രദ്ധേയമായിരുന്നു

ഉത്താരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഭഗത് സിംഗ് കോശ്യാരി മഹാരാഷ്ട്രാ ഗവർണറാകും മുൻ കേന്ദ്രമന്ത്രി ബന്ദാരു ദത്താത്രേയേയാണ് ഹിമാചൽ പ്രദേശിന്റെ പുതിയ ഗവർണർ ഹിമാചൽ ഗവർണറായിരുന്ന കൽരാജ് മിശ്രയെ രാജസ്ഥാൻ ഗവർണറ്റായുള്ട് ഡോ തമിഴിസൈ സൌന്ദര രാജനെ തെലങ്കാന ഗവർണറായും നിയിമിച്ചു മുഖ്യമന്തി പ്രളയ പശ്ചാത്തലത്തിൽ ് മണ്ണിന്റെയും ജലത്തിന്റെയും സംരക്ഷണം ഉറപ്പാക്കുന്ന കാര്യങ്ങൾ നാം കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്പാസ്റ്റിക്കിന്റെ ഉപയോഗം ഇല്ലാതാക്കണം

കല്ലും മണലും ഉപയോഗിക്കാതെ വീട് നിർമ്മിക്കുന്ന രീതി രൂപപ്പെട്ടു വരണം കാർഷിക രംഗത്തെ പുരോഗതിക്കായി തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതലായി ഇടപെടണം

നബാർഡിന്റെയും സംസ്ഥാന ഹോർട്ടി കൾച്ചർ മിഷന്റെയും സാമ്പത്തിക സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലയിലെ കടമ്പൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

ചടങ്ങിൽ മന്ത്രി വി

മണ്ണിന്റെയും ജലത്തിന്റെയും പരിപാലനമാണ് കൃഷി സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനമെന്ന് മന്ത്രി പറഞ്ഞു

സംസ്ഥാന്ത്ത് മറ്റന്നാൾ മുതൽ കർശന പരിശോധന പരിപാടി ആരംഭൂിക്കും ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചാൽ രക്ഷിതാക്ക്ൾക്കോ വാഹന ഉടമയ്ക്കോ എതിരെ നടപടിയുണ്ടാവും

ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെ വാഹനം ഓടിച്ചാൽ ആയിരം രൂപ പിഴ നൽകണം

ഡീലർമാർ വാഹന രജിസ്ട്രേഷനിൽ തെറ്റായ വിവരം നൽകിയാൽ ഒരു വർഷം വരെ തടവോ വാർഷിക നികുതിയുടെ പത്ത് ഇരട്ടിയോളമോ പിഴ ചുമത്തും

കൊല്ലം തെന്മല പരപ്പാർ ഡാം കൊല്ലം തെന്മല പരപ്പാർ ഡാമിലേക്കുള്ള് ന്നീരൊഴുക്ക് ക്രമാതീതമായി ഉയരുന്നതിനാൽ ജലനിരപ്പ് നിയ്ത്രിക്കുന്നതിന്റെ ഭാഗമായുള്ള വൈദ്യുതി ഉത്പാദനം തുടരുന്നു

അറിയിപ്പ്പ്പ്പ്ട്ടാകുന്നതുവരെ ഈ ഇനിയൊരു പ്രകിയ തുടരു മെന്നതിനാൽ നദിയുടെ ഇരുകരകളിൽ താമസിക്കുന്നവരും നദിയിലിറങ്ങുന്നവരും ജാഗ്രത പാലിക്കണെമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു വോട്ടർ പട്ടിക ഇൻട്രോ സംസ്ഥാനത്ത് വോട്ടർ പട്ടിക സംശുദ്ധമാക്കൽ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ

പദ്ധതി വിജയകരമാക്കാൻ ജനങ്ങൾ സഹകരിക്കണമെന്ന് മുഖ്യതെരഞ്ഞടുപ്പ് ഓഫീസർ ആകാശവാണിയോട് പറഞ്ഞു

സ്ഥാനാർത്ഥിയെ ഇന്നുതന്നെ പ്രഖ്യാപിക്കുമെന്ന് ജോസ് മാണി ആവർത്തിച്ച് കെ വ്യക്തമാക്കിയപ്പോൾ എല്ലാവരുമായും ചെയ്ത് ചർച്ച ചൊവ്വാഴ്ചയോടെയേ തീരുമാനമുണ്ടാകൂവെന്ന് പി ജെ ജോസഫ് അറിയിച്ചു കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻ ചാണ്ടി രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ് ഇരു വിഭാഗവുമായി ഇന്നു ചർച്ച നടത്തും

ഉപ ക്തിർഞ്ഞെടുപ്പിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി മാണി സി ക്യാപ്പർന്റെ ആദ്യ ഘട്ട തിരഞ്ഞെടുപ്പു പ്രചാരണത്തിന് പഞ്ചായത്തുരിലൂകൺവെൻഷനോടെ തുടക്കമായി

ശ്രീകൃഷ്ണൻ അന്തരിച്ചു

കേരള സംഗീത നാടക അക്കാദമി അവാർഡും ഗുരുവായൂരപ്പൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്

വിനോദ നികുതി ഈടാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി ഗവൺമെന്റ് ഉത്തരവായി

ഇതിനു പുറമെ ജി

ഓണത്തിന്റെ വരവറിയിച്ച് സംസ്ഥാനത്തെ വീടുകളിലും അമ്പലങ്ങളിലും ക്ലബ്ബുകളിലും നാളെ മുതൽ പൂക്കളങ്ങൾ ഒരുങ്ങും പ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷവും നടക്കും

അത്താഘോഷം നടക്കുന്നതിനാൽ തൃപ്പൂണിത്തുറ നഗരസഭാ പരി ധിയിലുള്ള ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപന ങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചു

തമിഴ് നാട്ടിലെ തേനി ജില്ലയിലെ ശീലയംപെട്ടി ഗ്രാമത്തിൽ നിന്നാണ് മധ്യകേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കളെത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

വൈകിട്ട് ഏഴിന് തിരുവിതാം കൂർ ദേവസ്വംബോർഡ് പ്രസിഡന്റ് എ

ക്ഷിത്ര സന്നിധിയിൽ നടക്കുന്ന പൊതു സമ്മേളന ത്തിൽ മികച്ച ക്ഷേത്രഅ്നുഷ്ഠാന കലാകാരന്മാർക്കുള്ള തൃക്കാക്ക രയപ്പൻ പുരസ്കാര വിതരണം നടക്കും

എസ് ആർ

സി അധിക സർവീസുകൾ നടത്തും